വെളിച്ചക്കുറവുമൂലം ഇന്നത്തെ കളി നേരത്തെ അവസാനിപ്പിച്ചു ലലലലലലലലലലലല ശബരിമല വിഷയം സജീവമായി നിലനിൽക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുംബിജെപി അധ്യക്ഷൻ അമിത് ഷായും സംസ്ഥാനത്തെത്തും പ്രധാനമന്ത്രി ഈ മാസം രണ്ട് തവണ കേരളം സന്ദർശിക്കും

കൊല്ലം പത്തനംതിട്ട പാലക്കാട് തൃശൂർ ജില്ലകൾ പ്രധാനമന്ത്രി സന്ദർശിക്കും ഗ്രവൺമെന്റ് പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും അടുത്ത മാസമാണ് അമിത്ഷായുടെ കേരള സന്ദർശനം ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കുന്നതിന് ശ്രമം നടക്കുന്നതായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ആർ എസ് എസ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളു കളിലും ക്ഷേത്രങ്ങളിലും ആയുധങ്ങൾ ശേഖരിച്ചുവെ യ്ക്കുന്നത് ഇതിനാണെന്നും അദ്ദേഹം വാർത്താസമ്മേ ളനത്തിൽ പറഞ്ഞു വീടുകൾക്കുനേരെ ആക്രമണം പാടി ല്ലെന്ന ഉഭയകക്ഷി ചർച്ചയിലെ തീരുമാനം കണ്ണൂർ ജില്ല യിൽ ആർ എസ് എസ് ലംഘിച്ചെന്ന് കോടിയേരി കുറ്റ പ്പെടുത്തി സമാധാന ചർച്ചയിൽ എ എൻ ഷംസീർ എം

എ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതേ എം എൽ എയുടെ വീടിനു നേരെ ബോംബെറിഞ്ഞത് ഈ ആക്രമണങ്ങളെല്ലാം ആസൂത്രിതമാണ് പൊലീസ് ആർ എസ് എസിന്റെ യഥാർത്ഥ പ്രവർത്തനം എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്ക ണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു ഒരു വിഭാഗം പൊലീസ് ഉദ്യോഗസ്ഥൻമാർ ആർ എസ് എസിന് വിധേ യരായി പ്രവർത്തിക്കുന്നുണ്ട് ഇത് ശരിയല്ലെന്നും അക്ര മികളെ ശക്തമായി അടിച്ചമർത്താനാണ് പൊലീസ് ശ്രമി ക്കേണ്ടതെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ആർ എസ് എസും ബി ജെ പിയും സൃഷ്ടിക്കുന്ന പ്രകോപനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ പെട്ടുപോകരു തെന്നും കോടിയേരി ഓർമ്മിപ്പിച്ചു

സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർക്കാൻ സംഘപരിവാർ ശക്തി കൾ ബോധപൂർവൃം ശ്രമിക്കുകയാണ്

പൊലീസിന്റെ തണലു പറ്റി ആർ എസ് എസിന് അനുകൂലമായി എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതേണ്ടേ മുഖ്യമന്ത്രിയുടെ കാറിനു മുന്നിൽ എടുത്തുചാടി അദ്ദേഹത്തെ കൊലയാളിയാ ക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല ഇതെല്ലാം കേരളത്തിലെ ജനത തിരിച്ചറിയുന്നുണ്ടെന്നും മന്ത്രി മാധൃമങ്ങളോട് പറഞ്ഞു സംസ്ഥാനത്ത് അക്രമ പരമ്പര വർദ്ധിക്കു മ്പോൾ പോലീസ് സ്വീകരിക്കുന്ന നിഷ്ക്രിയ നിലപാട് അരാജകത്പത്തിന് വഴിയൊരുക്കുന്നുവെന്ന് പ്രതിപക്ഷ

ആർ എസ് എസിനും ബിജെപിക്കും അക്രമം നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് സൌകര്യമൊരുക്കിക്കൊടുക്കുകയാണ് സാമുദായിക ധ്രുവീകരണം ഉണ്ടാകുന്നുവെങ്കിൽ ഉണ്ടാകട്ടെ എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട് ബിജെപിയും സിപിഐഎമ്മും നടത്തുന്ന അക്രമങ്ങളിൽ സാധാരണക്കാർ വലയുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

വി മുരളീധരൻ എം പിയുടെ വീടിനു നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതികൾ ഉൾപ്പെടെ പിടിയിലായതായി സൂചന്യുണ്ട് കസ്റ്റഡിയിലെടുത്ത വരെ വിശദമായി ചോദ്യം ചെയ്തുവരികയാണെന്ന് ജില്ലാ പൊലീസ് മേധാവി പറഞ്ഞു കൂടുതൽ പ്രതികൾക്കായി റെയ്ഡ് തുടരുകയാണ് എസ് പി ശിവവിക്രം ജില്ലാക ലക്ടർ മീർമുഹമ്മദലി എന്നിവർ തലശ്ശേരിയിൽ ക്യാമ്പു ചെയ്ത് ക്രമസമാധാന പാലനത്തിന് നേതൃത്വം നല്കി വരുന്നു

കണ്ണൂർ ജില്ലാ പൊലീസ് മേധാവിയുടെ സാന്നിധ്യത്തിൽ വൻപൊലീസ് സന്നാഹമാണ് തലശ്ശേരിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്

സംഘർഷ മുണ്ടായ തലശ്ശേരിയിൽ ഒരു എ എസ് പിക്കും മൂന്ന് ഡി വൈ എസ് പി മാർക്കും സുരക്ഷാ ചുമതല നല്കി കോഴിക്കോട് പേരാമ്പ്രയിൽ സി പി ഐ എം പ്രവർത്തകന്റെ വീടിനുനേരെ ബോംബേറുണ്ടായി

പുലർച്ചെ നടന്ന ബോംബേറിൽ വീടിന്റെ ജനൽചില്ലു കൾ തകർന്നു

കണ്ണൂർ ജില്ലയിലെ അക്രമങ്ങൾ തട യാൻ കർശുന നടപടിയെടുക്കാനും രാഷ്ട്രീയ നേതാ

കണ്ണൂരിൽ സമാധാനത്തിന് സിപി ഐഎം മുൻകൈ യ്യെടുക്കു മെന്ന് പാർട്ടി ജില്ലാ സെക്ര ട്ടറി പി ജയരാജൻ പറഞ്ഞു

കലാപഭൂമിയാക്കാനാണ് സംഘപരിവാറിന്റെ ്തീരുമാന മെന്നും പി ജയരാജൻ കണ്ണൂരിൽ ആരോപിച്ചു

തലശ്ശേരി എ എസ് പി യുടെ നേതൃത്വത്തിലായിരുന്നു റൂട്ട്മാർച്ച് അക്രമം നടത്തുന്നവരുടെ പേരിൽ കർശന നടപടി യെടുക്കുകയും ഇവരുടെ ബാങ്ക് അക്കൌണ്ടുകളടക്കം മര വിപ്പിക്കുകയും ചെയ്യുമെന്ന് കാസർകോട് ജില്ലാകല ക്ടർ ഡോ

കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാതല സമാധാന യോഗ ത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഒരു സഹോദരി കയറിയപ്പോൾ ശുദ്ധീകരണം നടത്തിയ തന്ത്രി മനുഷ്യനാണോയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു ശബരിമലയിൽ ഇപ്പേൾ ശ്രുദ്ധിക്രിയ നടത്തുന്നില്ലെന്ന് തന്ത്രി കണ്ഠരര് രാജീവരര് പറഞ്ഞു ശബരിമലയിൽ ശ്രീലങ്കൻ യുവതി കയറിയതായി പോലീസോ ദേവസം ബോർഡോ സ്ഥിരീകരിച്ചിട്ടില്ല അതിനാൽ ഇപ്പോൾ ശുദ്ധിക്രിയയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമലയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞയുടെ സമയപരിധി ഇന്ന് അവസാനിക്കും

ശബരിമല് വിഷയം ചർച്ച ചെയ്യുന്നതിനായി യു ഡി എഫ് അടിയന്തരയോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി സംസ്ഥാന ഗവൺമെന്റിനെതിരായ പ്രതിഷേധം ശക്തമാക്കുന്ന കാര്യം കന്റോൺമെന്റ് ഹൌസിൽ ചേർന്ന യോഗം ചർച്ച ചെയ്തു ജമ്മു ക ശ് മീ രിലെ പുൽവാ മ യിൽ സുര ക്ഷാ സേനയും ഭീകരപ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാസേന തെരച്ചിൽ നടത്തുകയായിരുന്നു

കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല

ഇന്ത്യയുടെ കുൽദീപ് യാദവ് മൂന്നും രവീന്ദ്ര ജഡേജ രണ്ടും മുഹമ്മദ് ഷമി ഒരു വിക്കറ്റും നേടി

ആയുർവേദ മെഡി ക്കൽ അസോസിയേഷൻ കൊല്ലം ജില്ലാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ലോക സഞ്ചാരി മൊയ്തു കിഴിശേരിയുടെ പുരാവസ്തു ശേഖരമാണ് അക്കാദമിയിൽ പ്രദർശിപ്പിക്കുന്നത്

രാജ്യ സഭാ എം പിയും എഴുത്തുകാരനും കോളമിസ്റ്റുമായ രാകേഷ് സിൻഹ സെമിനാർ ഉദ്ഘാ ടനം ചെയ്യും മാധ്യമധർമ്മം പുനർനിർവചിക്കപ്പെടു മ്പോൾ എന്ന വിഷയത്തിലാണ് സെമിനാർ ആർ എസ് എസിന്റെ ചരിത്രം മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ എഴുത്തുകാരനും ചിന്തകനുമാണ് എം എ കൃഷ്ണൻ കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിനിടെ കോഴിക്കോട് മിഠായിത്തെരുവിൽ ആക്രമണം നടത്തിയ ഏഴ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും

സംസ്ഥാന ഗവൺമെന്റിന്റെ എട്ട് ഇ ഗവേണൻസ് പുരസ്കാരങ്ങളിൽ അഞ്ചെണ്ണവും കണ്ണൂർ ജില്ലയ്ക്ക് ല ഭിച്ചു ഭരണ നിർവഹണത്തിൽ മികച്ച രീതിയിൽ വിവരസാങ്കേതികവിദ്യ ഉപയോഗിച്ചതിന് ബെസ്റ്റ് ഇ ഗ വേൺഡ് ജില്ലയായി കണ്ണൂരിനെ തെരഞ്ഞെടുത്തു മാ പ്പ് മൈ ഹോം പദ്ധതിയാണ് ജില്ലയെ ഈ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹമാക്കിയത് അന്ധക്ഷേമ പക്ഷാചരണത്തിന്റെ ഭാഗമായി നാളെ അത്തോളിയിൽ ബ്ലൈൻഡ്വാക്കും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും

തമിഴ് നാട് ഡിണ്ടി ഗൽ നടു വത്തൂർ പള നി സ്വാ മിയെയാണ് മോഷണത്തിനിടയിൽ പൊലീസ് പിടികൂടിയത്

ലലലലലലലലലലലലല കർഷകർക്ക് വരുമാനം ഉറ്പ്പാക്കുന്നതിന് ഫാർമേഴ്സ് വെൽഫെയർ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെ ടുന്ന സ്വകാര്യ ബിൽ ജോയ്സ് ജോർജ്ജ് എംപി ലോക്സ ഭയിൽ അവതരിപ്പിച്ചു കാർഷിക ഉൽപ്പനങ്ങളുടെ വില യിടിവ് തടയാൻ ഇൻഷുറൻസ് അടക്കം ഒട്ടേറേ പദ്ധതി കൾ വെൽഫെയർ ബോർഡിന്റെ പരിധിയിൽ ഉൾപ്പെടു ത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു